നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പ്രികാശ് ജാവദേക്കർ

അൻപത് കോടിയോളി്ട് ഡോസ് കോവിഡ് പ്രതിരോധ മരുന്ന് ന് അടുത്ത വർഷം പീക്ടുതിയോടെ തയ്യാറാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്രം

കേരളത്തിൽ ഇന്നലെ ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗമുക്തി നിരക്ക്

മുംബൈ ഇന്ത്യൻസും ജേതാക്കൾ

സാമൂഹ്യ ശാക്തീകരണത്തിന് ഉത്തരവാദിത്ത നിർമിത ബുദ്ധി എന്ന ആശയം ആസ്പദമാക്കി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ

വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം കൃഷി സ്മാർട്ട് മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിലെ സാമൂഹിക പരിവർത്തനത്തിനും ശാക്തീകരണത്തിനും നിർമിതബുദ്ധി ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച ആശയ കൈമാറ്റത്തിന് ബ്രഹത് ഉച്ചകോടി വഴിയൊരുക്കും

കാർഷിക പരിവർത്തനത്തിലേക്കും കർഷകരുടെ വരുമാനം ഉയർത്താനുള്ള ക്രിയാത്മക നടപടികളുമാണ് പുതിയ കാർഷിക ബില്ലുകൾ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വില നിർണയിക്കുന്നത് നിർമ്മാതാവാണ് പക്ഷെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇടനിലക്കാർ വില നിർണ്ണയിക്കുന്ന പ്രവണതയുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നതിലൂടെ കൃഷിക്കാര നായ നിർമാതാവിന് കാർഷികോൽപ്പന്നത്തിനുള്ള വില തീരുമാനി ക്കാനാകും ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുക മാത്രമല്ല വില നേരിട്ട് കർഷകരുടെ കൈകളിൽ എത്തുമെന്ന അവസ്ഥയും ഉണ്ടാ കുകയാണെന്ന് ശ്രീ ജാവ്ദേക്കർ ഗോവയിൽ മാധ്യമങ്ങളോട് പറ ഞ്ഞു കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും ആഗ്രഹി ക്കുന്ന വിലയ്ക്ക് വിൽക്കാനും കഴിയും പുതുതായി നടപ്പാക്കിയ കാർഷിക നിയമങ്ങളെചൊല്ലി രാഷ്ട്രീയത്തിന് ഇരയാകരുതെന്ന് അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിപണി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്രൃം കർഷകർക്കുണ്ട് ചില സംസ്ഥാനങ്ങളിൽ അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രീ

നടപ്പ് ഖാരിഫ് വിപണന കാലയളവിൽ മൊത്തം സംഭരണം അഞ്ച് ലക്ഷത്തിക്ടൂറും ടണ്ണിലധികമാണെന്ന് ഉപഭോക്തൃ കാര്യ മന്ത്രാലയം അറിയിച്ചു

കുട്ടികൾ വയോധികർ എന്നിങ്ങനെ മുൻഗണനാ ക്രമം നിശ്ചയിച്ചാകും ഒന്നാം ഘട്ടം മരുന്ന് നൽകുക ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണപ്രദേശങ്ങളും മുൻഗണനാ പട്ടിക സമർപ്പിക്കണമെന്നും കേന്ദ്ര ആരോഗൃമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗമുക്തി നിരക്കാണിത്

അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഇന്ത്യയിലാണ്

എൽ ക്രിക്കറ്റ് വാർത്തകൾ

ഡി എ യിൽ സീറ്റ് ധാരണയായി നിതീഷ്കുമാർ നയിക്കുന്ന ജനതാദൾ യുണൈറ്റഡും ബി ജെ പിയും പകുതിവീതം സീറ്റുകളിൽ മത്സരിക്കാനാണ് തീരുമാനം

ജെ

യുവിന് ലഭിച്ച സീറ്റുകളിൽ നിന്ന് ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് സീറ്റ് നൽകും

ബംഗളുരുവിൽ അന്തരിച്ച മിഷ്ടി മുഖർജിയുടെ സംസ്ക്കാര ചടങ്ങുകൾ നടത്തി